പ്രളയബാധിത മേഖലകളിൽ അല്പസമ യത്തിനകം അദ്ദേഹം വ്യോമനിരീക്ഷണം നടത്തും

ഗവർണർ പി സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർ പ്രധാനമന്ത്രിയെ അനുഗമിക്കും

മുഖ്യമന്ത്രി മന്ത്രിമാർ ഉന്നത ഉദ്യോ ഗസ്ഥർ എന്നിവരുമായി ആശയവിനിമയം നടത്തുന്ന അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തും

സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറി യിച്ചു ചെങ്ങന്നൂരിലും ചാലക്കുടിയിലുമാണ് ഏറ്റവും കൂടുതൽ പേരെ രക്ഷ പ്പെടുത്താനുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

വലിയ ബോട്ടുകൾ വരു ന്നതോടെ ഇതിന് പരിഹാരമാകുമെന്നും സൈനൃത്തിന്റെ കൂടുതൽ ബോട്ടു കൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമെത്തുമെന്നും മുഖ്യമന്ത്രി അറിയി ച്ചു ചാലക്കുടിയിലും ചെങ്ങന്നൂരിലും വ്യോമസേനയുടെ നാല് ഹെലികോ പ്ടറുകൾ ഇന്ന് രാവിലെയെത്തും തിരുവല്പയിൽ നാവികസേനയുടെ മൂന്ന് ഹെലികോപ്ടറുകളും രാവിലെമുതലുണ്ടാകും

കാലടിയിൽ കരസേനയുടെ അഞ്ച് ബോട്ടുകൾ ഇന്ന് അധികമായി രക്ഷാപ്രവർത്തനത്തിനുണ്ടാകുമെന്ന് മുഖ്യ മന്ത്രി പറഞ്ഞു കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുമായി ചീഫ് സെക്രട്ടറി നട ത്തിയ വീഡിയോ കോൺഫറൻസിൽ അറുനൂറിലധികം ബോട്ടുകളും കൂടു തൽ ഹെലികോപ്ടറുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്

പഞ്ചാബ് മഹാരാ ഷ്ട്ര തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഭക്ഷണപ്പൊതികൾ ലഭ്യമാക്കു മെന്ന് അറിയിച്ചിട്ടുണ്ട് റെയിൽവെ ഒന്നരലക്ഷം ലിറ്റർ വെള്ളക്കുപ്പികൾ നൽകി ആവശ്യമായ ശുദ്ധജലം എത്തിക്കുമെന്ന് റെയിൽവെ അറിയിച്ചിട്ടു ണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നെടുമ്പാശേരി വിമാനത്താവളത്തിൽ വെള്ളം കയറിയതിനാൽ ചെറിയ വിമാനങ്ങൾ കൊച്ചിയിലെ നാവിക വിമാനത്താവ ളത്തിൽ ഇറക്കുന്നതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ഡൽഹി റൂട്ടിൽ വിമാനയാത്രാ നിരക്ക് പരമാവധി പതിനായിരം രൂപയായി നിജപ്പെടു ത്തുമെന്നും മറ്റ് വിമാനത്താവളങ്ങളിലെ തുക ഇതിനനുസൃതമായി നിശ്ചയി ക്കുമെന്നും ക്യാബിനറ്റ് സെക്രട്ടറി ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി വെളി പ്പെടുത്തി ദർവ്വഹി ചെങ്ങന്നൂരിലും കുട്ടനാട്ടിലും വിവിധ പ്രദേശങ്ങളിൽ കുടുങ്ങി ക്കിടക്കുന്നവരെ സുരക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ പ്രവർത്തനങ്ങൾ രാവിലെ തന്നെ പുനരാരംഭിച്ചു

നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും കൂടുതൽ സംഘാംഗങ്ങൾ ആലപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അച്ചൻകോവിലാറും പമ്പയും കരകവിഞ്ഞ് ഒഴുകുന്നതിനാൽ കുട്ടനാട് കാർത്തികപള്ളി അമ്പലപ്പുഴ മാവേലിക്കര താലൂക്കുകളിൽ നദീതീരത്തുള്ള ആയിരക്കണക്കിന് വീടുകൾ വെള്ളത്തിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും തണ്ണീർമുക്കം ബണ്ട് വഴിയും കടലിലേക്ക് വെള്ളം ശക്തിയോടെ ഒഴുകിപോകുന്നതിനാൽ ജലനിരപ്പ് ഇന്ന് താഴുമെന്ന് പ്രതീക്ഷയുണ്ട് അതേ സമയം വേമ്പനാട്ടുകായലിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഇന്നും ജലനി രപ്പ് ഉയരുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് പുറം ലോകവുമായി ബന്ധമില്ലാതെ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ അധികവും കുട്ടികളും വൃദ്ധരുമാണ് ദിവസങ്ങളായി ഭക്ഷണം പോലും ലഭിക്കാത്തിനാൽ ഇവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട്

ഒറ്റപ്പെട്ട് കേന്ദ്രങ്ങളിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ കൂടുതൽ ഹെലികോപ്റ്ററുകൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സഹായം ലഭിച്ചില്ലെങ്കിൽ ആയിരങ്ങൾ മരിക്കുമെന്ന് ഇന്നലെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു

രദ്ദമ്പ്പെട്ടറ സംസ്ഥാനത്ത് പെട്രോളിയം ഉത്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

ഇവിടങ്ങളിൽ പെട്രോളിയം ഉത്പന്നങ്ങൾ എത്തിക്കുന്നതിന് ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും മുഖ്യ മന്ത്രി പറഞ്ഞു

രദേവ്ട്ട്ട്ട്ട്ട്ട ദുരിതാശാസ പ്രവർത്തനങ്ങൾക്ക് സജീവമായി ഇറങ്ങാൻ കോൺഗ്രസ് പ്രവർത്തകരോട് പാർട്ടി അധൃക്ഷൻ രാഹുൽഗാന്ധി ആവശ്യപ്പെട്ടു പ്രളയ ത്തിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ എല്ലാ വിഭവങ്ങളും പ്രയോജനപ്പെ ടുത്തണമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു പ രദ്ദേഷ്ടങ പ്രളയബാധിത മേഖലകളിലെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി സൈന്യത്തെ ഏൽപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു തിരു വനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ പ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേരളത്തിന് കൂടുതൽ സാമ്പ ത്തിക സഹായം അനുവദിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു

എട്ട് മത്സ്യത്തൊഴിലാളികളും രണ്ട് ഫയർഫോഴ്സ് ജീവനക്കാരുമാണ് ബോട്ടിലുള്ളത്

നെല്ലിയാമ്പതി ചുരം റോഡിൽ മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും പാലം തകർന്ന് ഗതാഗതം പൂർണമായും തടസ്സപ്പെട്ടു ചെറുനെല്ലി ആദിവാസി കോളനിയിലെ മുഴുവൻ കുടുംബങ്ങളെയും ദുരിതാശാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു മൂന്ന് ദിവസമായി ഗതാഗതം മുടങ്ങിയ നെല്ലിയാമ്പതിയിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ ഹെലികോപ്റ്ററുകളുടെ സഹായം തേടിയിട്ടുണ്ട് അട്ടപ്പാടി ചുരം റോഡിലും ഗതാഗത തടസ്സം തുടരുകയാണ്

പാലക്കാട് നെന്മാറയിലും കോട്ടോപാടത്തും ഉരുൾപൊട്ടലിൽ കാണാതായ മൂന്ന് പേരുടെ കൂടി മൃതദേഹങ്ങൾ കണ്ടെടുത്തു

ദർശ്ശേര തെന്മല ഡാം തുറക്കുന്നതിനാൽ അഷ്ടമുടിക്കായൽ കരകവിയുമെന്നും ആളുകൾ വീടൊഴിഞ്ഞു പോകണമെന്നും കൊല്ലം ജില്ലാ കലക്ടറുടെ പേരിൽ നടത്തുന്ന പ്രചാരണം വ്യാജമാണെന്ന് ജില്ലാ കലക്ടർ ഡോക്ടർ എസ് കാർത്തികേയൻ അറിയിച്ചു

ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഏതാണ്ട് പൂർണ്ണ മായും വെള്ളത്തിലാണ് ചങ്ങനാശേരി കോട്ടയം വൈക്കം താലൂക്കുക ളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾ കൂട്ടത്തോടെ ദുരി താശ്വാസ ക്യാമ്പുകളിലേക്ക് താമസംമാറ്റി

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട്ട കണ്ണൂർ ജില്ലയിൽ ഉരുൾപൊട്ടലും പേമാരിയും തീർത്ത പ്രളയക്കെടുതി ട ഏറ്റവുമധികം നാശം വിതച്ചത് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലാണ്

പി രാമകൃഷ്ണനും എ

കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണവിധേയമാണെന്നും ഒറ്റ പ്പെട്ടവരായി ആരുമില്ലെന്നും കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗ ത്തിൽ മന്ത്രിമാർ പറഞ്ഞു

ചൊവ്വാഴ്ചവരെ മഴ തുടരുമെന്നാണ് റിപ്പോർട്ട്

വൈകിട്ട് ഏഴിന് ഗെലോറ ബുങ് കർണോ സ്റ്റേഡിയ ത്തിലാണ് ഉദ്ഘാടന ചടങ്ങ്

ഉച്ചക്ക് മൂന്നരക്കാണ് മത്സരം അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളും തോറ്റ ഇന്ത്യക്ക് ഈ ടെസ്റ്റ് നിർണായകമാണ്

പത്ത് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു രദേഷ്ടെടു ഓണാവധി പുനഃക്രമീകരിച്ച തീരുമാനം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സി

എസ്

എസ്

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് നിർവഹിച്ചു

ഡിസ്റ്റിലറി എന്ന സ്ഥാപനത്തിലെ തൊഴി ലാളികളുടെ ബോണസ് സംബന്ധിച്ച തർക്കം ഒത്തുതീർന്നു